ആഗോള നിർമാണ പുതു സംരംഭകത്വ കേന്ദ്രമായി ഇന്ത്യ വളരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

സമൂഹ മാധ്യമങ്ങളോടുള്ള അമിതാശ്രയത്വം ഒഴിവാക്കണമെന്ന് ചീഫ് ജസ്റ്റിസ്ട് ദീപക് മിശ്ര

പാകിസ്ഥാനിൽ ഇന്ന് പൊതു തിരഞ്ഞെടുപ്പ്

കൊച്ചിയിൽ നടന്ന പ്രീ സീസൺ ഫുട്ബോൾ ടൂർണമെന്റിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ദയനീയ തോൽവി

സ്പീക്കേഴ്സ് റിസർച്ച് ഇനിഷ്യേറ്റീവിന്റെ മൂന്നാം വാർഷിക യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പാർലമെന്റ് നടപടി ക്രമങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്യപ്പെടുമ്പോൾ വികസനത്തെ സംബന്ധിച്ചും ജീവൽപ്രശ്നങ്ങളെ സംബന്ധിച്ചും ഉള്ള ചർച്ചകളാണ് പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു

യുഗാണ്ടയിലെ കംപാലയിൽ ഇന്നലെ രാത്രി ഇന്ത്യൻ സിമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

റെയിൽ ട്രാക്കുകളും മെട്രോ റെയിൽ കോച്ചുകളും ഉപഗ്രഹങ്ങളും നിർമ്മിക്കാൻ ഇന്ത്യൻ നിർമ്മിതി ഉരുക്കാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്

പ്രകൃതി വിഭവ സമ്പന്നമായ യുഗാണ്ട ഉൾപ്പെടെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളെ ഉൾക്കൊള്ളുന്ന വിദേശനയമാണ് ഇന്തൃയുടേതെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

സമൂഹ മാധ്യിമങ്ങളിലൂടെ ഊഹാപോഹങ്ങൾ പരക്കുന്നതിനെ തുടർന്ന് രാജ്യത്ത് ആൾക്കൂട്ട കൊലപാതകങ്ങൾ വർദ്ധിച്ചുവരികയാണെന്ന് അദ്ദേഹർ ചൂണ്ടിക്കാട്ടി ജനാധിപത്യ ലോകത്ത് മാധ്യമ സ്വാതന്ത്രൃം പരമൃപ്പ്യാർനമാണെന്നും എന്നാൽ മാധ്യമങ്ങൾക്ക് സ്വയം നിയന്ത്രണത്തിനുള്ള മാർഗ നിർദ്ദേശം ഉണ്ടാകണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇന്റർനാഷണൽ ലോ കമ്മീഷൻ സംഘടിപ്പിച്ച ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ബി

ഇതിറ്റായി അറുപതിനായിരം കോടിയിലേറെ രാസവളങ്ങളുടെ നിയന്ത്രിത ഉപയോഗം പ്രോത്സാഹിപ്പിക്കാനാണ് എൻബിഎസ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം അറിയിച്ചു

മുന്നു വർഷത്തെ ആകെ ലാഭത്തിന്റെ രണ്ട് ശതമാനമാണ് പദ്ധതിയിൽപ്പെടുത്തി ചെലവഴിക്കേണ്ടത്

ജഗ്ദൽപൂർ ഹീരാനർ എന്നിവിടങ്ങളിലെ കർഷകരുമായും വനിതാ സ്വയംസഹായ സംഘങ്ങളുമായും അദ്ദേഹും ഇന്ന് കൂടിക്കാഴ്ച്ച നടത്തും

തീർത്ഥാടക സംഘത്തിന്റെ യാത്ര വീണ്ടും തുടങ്ങിയതായി കേന്ദ്രമന്ത്രി ടിറ്ററിൽ വൃക്തമാക്കി

സ്ഥാപനത്തിലെ നാല് കൂട്ടികളെ വിൽപന നടത്തി എന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സന്ദർശനം രാജ്യത്തെ എല്ലാ അനാഥാലയങ്ങളിലും പരിശോധന നടത്തുമെന്ന് കമ്മീഷൻ അധ്യക്ഷൻ രൂപ വർമ്മ പറഞ്ഞു

ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിന് കൊല്ലം കളക് ട്രേറ്റിൽ നടത്തിയ വീഡിയോ കോൺഫറൻസിൽ നിർദേശങ്ങൾ നൽകുകയായിരുന്നു അദ്ദേഹം കുട്ടനാട്ടിലെ ക്യാമ്പുകളിൽ പച്ചക്കറികൾ എത്തിക്കാൻ ഹോർട്ടികോർപ്പ് നടപടി സ്വീകരിക്കണം കുട്ടനാട്ടിൽ ശുദ്ധജലം വലിയ കുപ്പികളിലും ജാറുകളിലുമാക്കി വള്ളങ്ങളിൽ ജനങ്ങൾക്ക് എത്തിച്ചു നൽകണം പകർച്ചവൃാധി വൃാപിക്കാതിരിക്കാൻ കരുതലോടെയുള്ള ഇടപെടൽ വേണം

വെള്ളപ്പൊക്കം ബാധിച്ച മേഖലകളിൽ ആവശ്യത്തിന് പാചകവാതക സിലിൻഡറുകൾ എത്തിക്കുന്നതിന്റ് പാചകവാതക കമ്പനികളുമായി ബന്ധപ്പെട്ട് ക്രമീകരണം ഏർപ്പെടുത്തുന്നതിന് മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിക്ക് നിർദേശം നൽക്കി

ഇവരുടെ കുടുംബത്തിന് അർഹമായ എല്ലാം സഹായവും ലഭ്യമാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു

ചിത്രങ്ങൾക്കുള്ള പുരസ്കാരങ്ങൾ സമാപന ചടങ്ങിൽ വിതരണം ചെയ്തു കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിത്ത്

ഇതോടെ ഓസ്കർ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള നോമിനേഷനും ചിത്രം നേടി

ആദിത്യ കെൽഗാകർ സംവിധാനം ചെയ്ത സൌണ്ട് പ്രൂഫ് ആണ് മികച്ച ഹ്രസ്വചിത്രം ഷോർട്ട് ഡോക്യുമെന്ററി വിഭാഗത്തിൽ ചായക്കടക്കാരന്റെ മൻ കീ ബാത്തിനാണ് പുരസ്കാരം

മികച്ച ഛായാഗ്രാഹകനുള്ള പ്പുരുസ്കാരത്തിന് പി

സാംസ്കാരിക പ്രവർത്തകരെയും എഴുത്തുകാരെയും ഭീഷണികൊണ്ട് വരുതിയിൽ നിർത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ ചങ്കൂറ്റത്തോടെ പ്രതികരിക്കണമെന്ന് സമാപന ചടങ്ങിൽ സംസാരിച്ച മന്ത്രി എ

തിരുവന്തപുരം മേഖലയുടെ ഉദ്ഘാടനവും എറണാകുളം കോഴിക്കോട് മേഖലകളുടെ പ്രഖ്യാപനവും മന്ത്രി ശശീന്ദ്രൻ നിർവ്വഹിക്കും

തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളാണ് ദക്ഷിണമേഖലയുടെ കീഴിൽ വരുന്നത്

പുതിയ പാർലമെന്റ് പ്രവിശ്യാ അസംബ്ലികളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രാവിലെ എട്ടിന് ആരംഭിക്കുന്ന വോട്ടെടുപ്പ് വൈകുന്നേരം ആറിന് അവസാനിക്കും

എതിരില്ലാത്ത ആറു ഗോളിന് മെൽബൺ എഫ്പ് സി ്യാണ് ബ്ലാസ്റ്റേഴ്സിനെ തകർത്തത് ആദ്യ പകുതിയിൽ കൃമ്ൽബൺ എഫ് സി രണ്ടു ഗോളിന് മുന്നിലായിരുന്നു ഓസ്ട്രേട്ടലിയൻ ലീഗിലെ മൂന്നാം സ്ഥാനക്കാരാണ് മെൽബൺ സിറ്റി മറ്റെന്നാൾ ജിറോണ എഫ് സി യുമായിട്ടാണ് മെൽബണിന്റെ അടുത്ത കളി ശനിയാഴ്ച കേരള ബ്ലാസ്റ്റേഴ്സ് ജിറോണയുമായി ഏറ്റുമുട്ടും

ഇന്ത്യ പാകിസ്ഥാൻ ശ്രീലങ്ക ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നിവരാണ് ചാമ്പ്യൻഷിപ്പിനു യോഗൃത നേടിയ ടീമുകൾ

ഇന്ന് ഇന്ത്യയുടെ വനിതാ താരങ്ങളും പുരുഷ ഡബിൾസ് ടീമും മത്സരത്തിനിറങ്ങും

തെന്മല കെ

പി ലേബർ കോളനിയിൽ വിഷ്ണുവിനെ യാണ് രാത്രി അറസ്റ്റ് ചെയ്തത്

നിയമസഭയുടെ അനൌദ്യോഗിക ബില്ലുകളും പ്രമേയങ്ങളും സംബന്ധിച്ച സമിതിയംഗങ്ങളും എം

എ മാരുമായ എ

ആരിഫും എൽദോ എബ്രഹാമുമാണ് ജില്ലയിലെ വൃദ്ധസദനങ്ങൾ സന്ദർശിച്ചത്

അടുത്തവർഷ്ടം ഫെബ്രുവരിയിലാണ് കമ്മീഷന്റെ കാലാവധി അവസാനിക്കുന്നത് സുഎസ്ഥാനത്തെ നാലു മേഖലകളായി തിരിച്ച് കമ്മീഷൻ സിറ്റിംഗ് ന്ടുത്തും